സംസ്ഥാനത്ത് വ്യാപക പരിശ്ചോർന്ന തുടങ്ങി ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പ്പേർ പരിശോധിക്കും കോവിഡ് മാർഗ്ഗനിർദ്ദേശ്ങ്ങൾ കർശനമാക്കി കേരളം

രാജ്യത്ത് രോഗവ്യാപ്പിന് നിരക്ക് ഉയർന്ന നിലയിൽ രാജ്യത്ത് വാക്സിൻ വിതരണം ഊർജ്ജിതം

കേസുകൾ ഹൈക്കോടതി റദ്ടാക്കി

ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും

ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും ജില്ലാതലത്തിൽ ഇതുസംബന്ധിച്ച് കളക്ടർമാരും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗവ്യാപനം ഏറെയുള്ള എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ രാവിലെ തന്നെ പരിശോധനാ കേന്ദ്രങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പരിശോധന ആവശ്യമുള്ള ഉയർന്ന കോവിഡ് വ്യാപന മേഖലകളിൽ മൊബൈൽ ആർ

ആർ ടെസ്റ്റിങ് യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്

കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ ഇതര സംസ്ഥാനങ്ങൾ കർഫ്യൂ ലോക്ക്ഡൌൺ തുടങ്ങിയ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചരൃത്തിലാണ് കേരളവും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത് പരിശോധനകൾ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്തവർ കോവിഡ് വ്യാപനം വേഗം നടക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഹോട്ടലുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങീ രോഗസാധൃതാ മേഖലകളിലുള്ളവരെയെല്ലാം പരിശോധനയ്ക്ക് വിധേയരാക്കും വിവാഹം ഗൃഹപ്രവേശം ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും പോലീസിനെ മുൻകൂട്ടി അറിയിക്കണം കടകളിൽ ക്യൂ സംവിധാനം നടപ്പാക്കും

സി ആർ ടെസ്റ്റിൽ നെഗറ്റീവായവർക്കും രണ്ട് ഡോസ് വാക്സീൻ സ്വീകരിച്ചവർക്കും മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി യുടെ ഹർജി പരിഗണിച്ചാണ് നടപടി ഇതോട്ടെക്ക് ്ഷി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത രണ്ട് ക്കീസുകളും നിലനിൽക്കില്ല

ക്കേസിന്റെ തുടർനടപടികളും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്

വിധി സ്വാഗതാർഹമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

എം ഷാജി എം എൽ

കഴിഞ്ഞ ദിവസം വിജിലൻസ് ഷാജിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വരവിൽകവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്

കഴിഞ്ഞ ദിവസം മാത്രം രണ്ട് ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് ബാധിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ് മുന്ത്രാലയം അറിയിച്ചു

എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത്

കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശ്രോൾനകളും ജില്ലയിൽ കാര്യക്ഷമമാക്കി കൂടുതൽ വിവ്രങ്ങളുമായി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

അനാവശ്യമായി രാത്രികാലങ്ങളിൽ സംഘം ചേരുന്നതും കവലകളിലും മറ്റും കൂട്ടം കൂടി നിൽക്കുന്നതും കർശനമായി നിയന്ത്രിക്കാൻ ഡിവിഷൻ തലത്തിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ആർ

ടി

മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരം ജില്ലയിൽ രണ്ടുദിവസത്തിനകം പതിനായിരം കോവിഡ് ടെസ്റ്റുകൾ നടത്തുമെന്നും കളക്ടർ പറഞ്ഞു അയൽ സംസ്ഥാനത്തുനിന്ന് ജില്ലയുടെ അതിർത്തി വഴി വരുന്ന എല്ലാവരെയും നിർബന്ധിത കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കും

എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ടെസ്റ്റ് നടക്കുന്നുണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും

ഇന്നലെ കരുത്തരായ ഡൽഹി ക്യാപ്പിറ്റൽസിനെ രാജസ്ഥാൻ റ്റ്റിയൽസ് മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു

കൊടിയേറ്റത്തോട് അനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ശുദ്ധി കർമ്മങ്ങൾക്ക് മുഖ്യ തന്ത്രിമാർ കാർമികത്വം വഹിക്കും കോവിഡ് വ്യാപനത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പൂരപ്പറ വീടുകളിൽ ചെന്ന് സ്വീകരിക്കുന്നത് ഒഴിവാക്കിയതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു

കൊമ്പുകൾ എടുക്കുന്നതിനായി വ്യാപകമായി ആനകളെ വേട്ടയാടുന്നത് തടയാനാണ് ലോകവ്യാപകമായി ആന പരിപാലന ദിനം ആചരിക്കുന്നത്

പാവുമ്പ സ്വദേശിനി മേബിൾ ജോസഫാണ് മരിച്ചത്